ഇന്ത്യ നിർമ്മിത ബുദ്ധിയുടെ ആഗോള കേന്ദ്രമാകാനുള്ള പ്രയാണത്തിലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി

പുറത്തിറക്കി

സ്ത്രീകൾക്കെതിരെ രാജ്യത്ത് ്നടക്കുന്ന അക്രമങ്ങളിൽ ന് വിദേശ ഏജൻസി അഭിപ്പായ പ്രകടനം നടത്തുന്നത് അനുചിതമെന്ന് ക്ലേന്ദ്റം

കേരളത്തിൽ രോഗവ്യാപനം ആശങ്കാജനകമെന്ന് ആരോഗൃമന്ത്രി

നിർമ്മിതബുദ്ധി ഉത്തരവാദിത്തത്തോടെ ഉപയോഗിക്കേണ്ടതിന്റെയും ആയുധവൽക്കരണത്തിനായി അത് ഉപയോഗിക്കുന്നതിനെ തടഞ്ഞ് ലോകത്തെ സംരക്ഷിക്കേണ്ടതിന്റെയും ആവശ്യകത പ്രധാനമന്ത്രി എടുത്തുപറഞ്ഞു നിർമ്മിത ബുദ്ധി എങ്ങനെ ഉപയോഗിക്കുന്നുവെന്ന തിലെ നടപടിക്രമങ്ങളുടെ സുതാരൃത പ്രധാനമാണെന്നും അത് ഉറപ്പാക്കേണ്ടത് നമ്മുടെ കൂട്ടായ ഉത്തരവാദിത്തമായി തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു നിർമ്മിതബുദ്ധിക്ക് ഭൂമിയിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും

വിദ്യാഭ്യാസത്തിന്റെ പ്രധാന ഭാഗമായി സാങ്കേതിക വിദ്യയ്ക്ക് ഉഊണ്ടൽ നൽകുന്ന ദേശീയ വിദ്യാഭ്യാസ നയമാണ് അടുത്തിടെ ഇന്ത്യ സ്വീകരിച്ചത്

ഒന്നാം ഭാഗത്തിൽ ആരോഗ്യത്തിനും സുരക്ഷയ്ക്കും പ്രാധാന്യം നൽകിയുള്ള കേന്ദ്ര ആരോഗ്യമന്ത്രാലയ ത്തിന്റെ മാർഗ്ഗനിർദ്ദേശങ്ങൾ പാലിക്കുന്നത് സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങളാണ് ഉള്ളത് മുഖാവരണം ധരിക്കുന്നതും സാമൂഹ്യ അകലം പാലിക്കുന്നതും നിർബന്ധമാക്കണ മെന്ന് നിർദ്ദേശത്തിൽ പറയുന്നു മാർഗ്ഗനിർദ്ദേശത്തിന്റെ രണ്ടാം ഭാഗത്തിൽ മഹാമാരിക്കിടയിൽ അക്കാദമിക വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് അവലംബിക്കേണ്ട രീതികളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അടച്ചുപൂട്ടൽ കാലത്ത് അവലംബിച്ച ഗൃഹാധിഷ്ഠിത പഠനത്തിൽ നിന്ന് ക്ലാസ്സ്മുറി പഠനത്തിലേക്ക് സുഗമമായി മാറുന്നതിനുള്ള രീതികൾ പുതിയ മാർഗ്ഗനിർദ്ദേശത്തിൽ വ്യക്തമാക്കുന്നു

സ്കൂളുകൾ തുറന്ന ശേഷം മുൻഗണനാടിസ്ഥാനത്തിൽ ക്ലാസ്സുകൾ പുനഃക്രമീകരിക്കേണ്ടതുണ്ട് അദ്ധ്യയനത്തിനായി സാങ്കേതിക വിദ്യാധിഷ്ഠിതമായ മാർഗ്ഗങ്ങൾ സ്വീകരിക്കുന്നതിന് അധ്യാപകർ സജ്ജരാകണം സുരക്ഷയും സാമൂഹിക അകലവും പാലിക്കുന്നതിന് സംസ്ഥാനങ്ങളും കേന്ദ്ര ഭരണപ്രദേശങ്ങളും പുറപ്പെടുവിച്ച മാർഗ്ഗ നിർദ്ദേശങ്ങൾക്ക് അനുസരണമായി സ്കൂളുകൾക്ക് അവരുടേതായ പെരുമാറ്റച്ചട്ടം രൂപീകരിക്കുന്നതിന് സ്വാതന്ത്ര്യമുണ്ടായിരിക്കുമെന്നും മാർഗ്ഗനിർദ്ദേശത്തിൽ പറയുന്നു ന്യൂസ് ഡെസ്ക് ആകാശവാണി

നാൽപത്തി രണ്ടാമത് ജി

ടി ക്ട്ട്ൺസിൽ യോഗത്തിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അവർ

മിസൈലിന്റെ ഉയരപരിധി പരമാവധി ദൂരം കൃത്യസമയത്തുള്ള ടോർപിഡോയുടെ വിക്ഷേപണം തുടങ്ങിയ പരീക്ഷണ ലക്ഷ്യങ്ങളെല്ലാം നേടാനായി

ലഡാക്കിലെ തന്ത്രപ്രധാനമായ മേഖലകളിലെല്ലാം സ്പേന്റ്റ്യെ വിന്യസിച്ചിട്ടുണ്ടെന്ന് വ്യോമസേനാ മേധാവി ആർ

എസ്ട്ര്ബദൌരിയ മാധ്യമങ്ങളോട് പറഞ്ഞു

വർദ്ധിപ്പിച്ച നിരക്കിൽ കുട്ടുംബ പെൻഷൻ ലഭിക്കണമെങ്കിൽ ഏഴ് വർഷത്തെ സേവനം വേണമെന്ന വൃവസ്ഥയിലാണ് ഇളവു വരുത്തിയത്

എൻ റസിഡന്റ് കോ ഓർഡിനേറ്റർ നടത്തിയ അഭിപ്രായ പ്രകടനം അനുചിതമാണെ ന്ന് കേന്ദ്രം സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങൾ സർക്കാർ വളരെ ഗൌരവമായാണ് കാണുന്നതെന്നും അന്വേഷണം നടന്നു വരികയാണെന്നും വിദേശ കാര്യ വക്താവ് അനുരാഗ് ശ്രീവാസ്തവ ന്യൂഡൽഹിയിൽ പറഞ്ഞു അനാവശ്യ അഭിപ്രായ പ്രകടനങ്ങൾ വിദേശ ഏജൻസികൾ ഒഴിവാക്കണം

എല്ലാ വിഭാഗം ജനങ്ങൾക്കും നീതീ ഉറപ്പാക്കുന്ന ജനാധിപതൃ രാഷ്ട്രമാണ് ഇന്തൃയെന്നും വിദേശകാരൃ വക്താവ് കൂട്ടിച്ചേർത്തു

കേന്ദ്ര സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രി തപാർ ചന്ദ് ഗെഹ്ലോട്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രമേശ് പൊഖ്റിയാൽ നിഷാങ്ക് എന്നിവരുടെ വെർചൽ സാന്നിധൃത്തിലാണ് ധാരണാപത്രം ഒപ്പുവയ്ക്കുക

സി

ട്രാൻസ് ജെൻഡർ വിഭാഗങ്ങൾക്ക് തുല്യ പരിഗണന നൽകുന്നതിനായാണ് സെൽ രൂപീകരിച്ചതെന്ന് മഹാരാഷ്ട്ര മന്ത്രിയും എൻ സി

രാജ്യത്ത് ആദ്യമായാണ് ഒരു രാഷ്ട്രീയ പാർട്ടി ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനായി പ്രത്യേക സെൽ രൂപീകരിക്കുന്നതെന്ന് ശ്രീ

നാല് വിക്കറ്റ് വീഴ്ത്തിയ കഗിസോ റബാദയാണ് ബ്രാംഗ്ലൂർ ബാറ്റിങ്ങിനെ തകർത്തത് വിരാട് കോഹ്ലി മികച്ച പ്രക്ടുടുക്ടും കാഴ്ച വച്ചെങ്കിലും മധ്യനിരയ്ക്ക് നിലയുറപ്പിക്കാൻ സാധിക്കാതെ പോയതാണ് ബാംഗ്ലൂരിന് തിരിച്ചടിയായത്

അനധികൃത നിർമ്മാണമെന്നാരോപിച്ച് തന്റെ വീട് ഭാഗികമായി പൊളിച്ചതിനെതിരെയാണ് കങ്കണ ഹർജി സമർപ്പിച്ചത്